ഗവർണർ സ്പീക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ പി

ഗവർണറെ തടഞ്ഞ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വാച്ച് ആന്റ് വാർഡ് പ്രതിപക്ഷത്തെ തടയാൻ ശ്രമിച്ചത് അന്വേഷിക്കുമെന്നും വാച്ച് ആന്റ് വാർഡിനോട് ബലപ്രയോഗം നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സ്പീക്കർ വൃക്തമാക്കി ഗവർണർക്കെതിരായ പ്രമേയ നോട്ടീസ് നിയമാനുസൃതമാണെന്നും തീരുമാനം നാളെ കാര്യോപദേശക സമിതിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു